സി യെന്ന് പ്രധാനമന്ത്രി ഇത്തവണത്തെ പൊതുപരീക്ഷകളുമായി ബന്ധപ്പെട്ട ചർച്ച ജനു വരി ആദ്യവാരമോ രണ്ടാം ആഴ്ചയിലോ നടത്തുമെന്ന് നരേന്ദ്ര മോദി പറഞ്ഞു മഹാരാഷ്ട്രയിൽ ദേവേന്ദ്രഫഡ്നാവിസിനെ മുഖ്യമന്ത്രിയായി സത്യ പ്രതിജ്ഞ ചെയ്യാൻ അനുവദിച്ചതിനെതിരെ ശിവസേന എൻ സി

വയനാട് മാനന്തവാടിയിലെ കാട്ടിക്കുളം ആലത്തൂർ എസ്റ്റേറ്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്തു ഇന്ത്യൻ സൂപ്പർലീഗ് ഫുട്ബോളിൽ ഒഡിഷ അത്ലറ്റികോ ഡി കൊൽക്കത്ത മത്സരം വൈകിട്ട് ഏഴരയ്ക്ക് അയോധ്യ തർക്കഭൂമിക്കേസിലെ വിധിപ്രഖ്യാപനത്തിൽ ജനങ്ങൾ കാണിച്ച പകതയും സംയമനവും പ്രശംസനീയമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു സുപ്രീംകോടതി വിധിയെ ഇരുകൈകളും നീട്ടി സമാധാനത്തോടെയും സഹിഷ്ണുതയോടെയും ജനങ്ങൾ സ്വീക രിച്ചതായി അദ്ദേഹം പറഞ്ഞു വൈവിധ്യമാർന്ന സംസ്കാരവും പൈതൃ കവും ഭാഷകളും രാജ്യത്തെ ഏകത്വത്തിലേക്ക് നയിക്കുന്നുവെന്ന സന്ദേ ശമാണ് ഇന്ത്യ ലോകത്തിന് നൽകുന്നതെന്ന് ആകാശവാണിയിലെ പ്രതിമാസ മൻ കി ബാത് പരിപാടിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു

സി ദിനം കൂടിയായ ഇന്ന് രാജ്യത്തെ തെരഞ്ഞെടുത്ത എൻ

സി കേഡറ്റുകളുമായി അദ്ദേഹം സംവദിച്ചു പഠനകാലത്തെ എൻ

സി അനുഭവങ്ങൾ നരേന്ദ്രമോദി അനുസ്മരിച്ചു

സി ക്യാമ്പിൽ പങ്കെടുക്കവെ പട്ടത്തിന്റെ ചരടിൽ കുരുങ്ങിയ പക്ഷിയെ രക്ഷിക്കാൻ മരത്തിൽ കയറിയ ഓർമ്മയും അദ്ദേഹം പങ്കുവെച്ചു യൂണി ഫോ മിട്ട ലോകത്തെ ഏറ്റവും വലിയ സന്ന ദ്ധ സം ഘ മാണ എൻ

സിയെന്ന് അദ്ദേഹം വിലയിരുത്തി

ഇത്തവണ പൊതുപരീക്ഷകളുമായി ബന്ധപ്പെട്ട ചർച്ച നേരത്തെ നടത്തുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു ജനുവരി ആദ്യവാരത്തിലോ രണ്ടാമത്തെ ആഴ്ചയിലോ നടത്തുന്ന ചർച്ചയിൽ ഡൽഹിയിലെത്തി നേരിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് അവസരം ഒരുക്കും മാന സിക പിരിമുറുക്കമില്ലാതെ പരീക്ഷയെഴുതണം പരീക്ഷ ചർച്ചാപരിപാടി ഒന്നിച്ച് ആഘോഷമാക്കണമെന്നും പ്രധാനമന്ത്രി നിർദേശിച്ചു ഫിറ്റ് ഇന്ത്യ പരിപാടിയിൽ സ്കൂളുകളെ ഗ്രേഡ് നൽകി തരംതിരി ക്കും മികച്ച ഗ്രേഡ് നേടാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ആഹാരശീലങ്ങളിൽ മാറ്റം വരുത്തി ശരീരത്തിന് ആയാസം നൽകുന്ന വിയർപ്പൊഴുക്കുന്ന അധാനശീലങ്ങളിൽ പങ്കാളികളാകാൻ പ്രധാനമന്ത്രി ജനങ്ങളെ ആഹ്വാനം ചെയ്തു ദേശീയ ഐക്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നദീ പുഷ്ക്കര ങ്ങൾക്ക് അർഹിക്കുന്ന പ്രചാരം രാജ്യത്ത് ലഭിച്ചിട്ടില്ലെന്ന് നരേന്ദ്രമോദി പറഞ്ഞു ഇന്റർനാഷണൽ റിവർ ഫെസ്റ്റിവൽ എന്ന് ഇതിനെ വിളിച്ചി രുന്നെങ്കിൽ കൂടുതൽ പ്രചാരം കിട്ടുമായിരുന്നുവെന്നും അദ്ദേഹം അഭി പ്രായപ്പെട്ടു ഭൂമിയുടെയും നദികളുടെയും പ്രാധാന്യം മനസ്സിലാക്കിയ പൂർവികരുടെ അറിവിന് തെളിവായിരുന്നു ഇത്തരം നദീ ഉത്സവങ്ങ ളെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മഹാരാഷ്ട്രയിൽ ദേവേന്ദ്രഫഡ്നാവിസിനെ മുഖ്യമന്ത്രിയായി സത്യ പ്രതിജ്ഞ ചെയ്യാൻ അനുവദിച്ചതിനെതിരെ ശിവസേന എൻ

പി കോൺഗ്രസ് സഖ്യം നൽകിയ ഹർജി സൂപ്രീംകോടതി നാളത്തേക്ക് മാറ്റി നാളെ രാവിലെ പത്തരയ്ക്കാണ് ഹർജി വീണ്ടും പരിഗണിക്കു ന്നത് ഗവർണർക്ക് നൽകിയ പിന്തുണക്കത്തുകൾ നാളെ ഹാജരാക്ക ണമെന്നും മൂന്നംഗ ബെഞ്ച് ആവശ്യപ്പെട്ടു

മൂന്നംഗ പ്രത്യേക ബെഞ്ചാണ് അവധി ദിനമായ ഇന്ന് ഹർജിയിൽ വാദം കേട്ടത്

ജെ പി ക്ക് വേണ്ടി ഹാജരായ മുകുൾ റോഹ്ത്തകി രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ ഗവൺമെന്റ് രൂപീകരണ ത്തിന് ക്ഷണിക്കുന്നത് ഗവർണറുടെ വിവേചനാധികാരമാണെന്നും ജുഡീഷ്യറിക്ക് അത് പരിശോധിക്കാനാവില്ലെന്നും വാദിച്ചു മഹാരാഷ്ട്രയിൽ ശിവസേന എൻ സി

എ മാരുടെ പിന്തുണയുണ്ടെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് അവകാശപ്പെട്ടു ഗവർണർ ആവശ്യപ്പെട്ടാൽ സേനാ സഖ്യത്തെ പിന്തുണയ്ക്കുന്ന എം

എ മാരെ തിരിച്ചറിയൽ പരേ ഡിന് ഹാജരാക്കാൻ തയ്യാറാണെന്നും റാവത്ത് പറഞ്ഞു കഴിഞ്ഞദിവസം ബി

പി നേതാവ് ദേവേന്ദ്രഫഡ്നാവിസിന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് രൂപീകരിക്കാൻ ഗവർണർ അനുമതി നൽകിയത് വൃാജരേഖകളുടെ അടിസ്ഥാനത്തിലാണെന്ന് റാവത്ത് മുംബൈയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു

ജെ പി യ്ക്കൊപ്പം ചേർന്ന അജിത്ത് പവാറിനെ നിയമസഭാ കക്ഷി നേതാവിന്റെ പദവിയിൽ നിന്ന് ഒഴിവാക്കിയതായി ഗവർണറെ അറിയിക്കാൻ എൻ

പി സംസ്ഥാന പ്രസിഡണ്ട് ജയന്ത് പാട്ടീൽ രാജ്ഭ വനിലെത്തി എന്നാൽ ഗവർണർ ഭഗത്സിംഗ് കോഷിയാരി മുംബൈ യിൽ ഇല്ലെന്ന് രാജ്ഭവൻ കേന്ദ്രങ്ങൾ അറിയിച്ചു ദേവേന്ദ്ര ഫഡ്നാവി സിനൊപ്പം ചേർന്ന് ഗവൺമെന്റ് രൂപീകരിച്ചതിനെ തുടർന്ന് അജിത്ത് പവാറിനെ എൻ സി പി നിയമസഭാകക്ഷി യോഗം പദവിയിൽ നിന്ന് മാറ്റുകയായിരുന്നു ബാങ്കിംഗ് മേഖലയിൽ മികച്ച നിയന്തണ സംവിധാനം ഉറപ്പുവരു ത്താൻ ഗവൺമെന്റ് ശ്രമിക്കുകയാണെന്ന് ധനമന്ത്രി നിർമ്മല സീതാ രാമൻ പറഞ്ഞു ലാഭകരമല്ലാത്ത ആസ്തികൾ കുമിഞ്ഞുകൂടു ന്നതായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ബാങ്കുകൾ അഭിമുഖീകരിച്ചിരുന്ന വെല്ലുവിളി ആഗോള വിപണിയിൽ ഇന്ത്യയിലെ കയറ്റുമതികൾക്കുവേണ്ട സൌകര്യങ്ങൾ ഗവൺമെന്റ് ഉറപ്പാക്കിയിട്ടുണ്ടെന്നും നിർമ്മലാസീതാ രാമൻ ഡൽഹിയിൽ പറഞ്ഞു വയനാട് മാനന്തവാടി തൃശ്ശിലേരി വില്ലേജിലെ കാട്ടിക്കുളം ആലത്തൂർ എസ്റ്റേറ്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്തു ബ്രിട്ടീഷ് പൌരൻ ജൂബർട്ട് വാൻഇംഗിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഭൂമി അദ്ദേഹത്തിന്റെ വളർത്തു പുത്രൻ എന്ന് അവകാശപ്പെടുന്ന മൈസൂർ സ്വദേശി മൈക്കിൾ ഫ്ളോയിഡ് ഈശ്വർ കൈവശം വെച്ചിരിക്കുകയായിരുന്നു

എസ്റ്റേറ്റ് സംസ്ഥാന ഗവൺമെന്റ് ഉടമസ്ഥതയിലേക്ക് മാറ്റാൻ നീക്കം നടക്കുന്നതിന് ഇടയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടി ഇന്ത്യൻ സൂപ്പർലീഗ് ഫുട്ബോളിൽ ഇന്ന് ഒഡിഷ അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയെ നേരിടും

ഐ ലീഗ് ചാമ്പൃൻഷിപ്പിൽ പങ്കെടുക്കുന്ന ഗോകുലം കേരള ടീമിനെ പ്രഖ്യാപിച്ചു മാർക്കസ് ജോസഫാണ് ക്യാപ്റ്റൻ

ഗുരുവായൂരിൽ ചെമ്പൈ സംഗീതോത്സവത്തിന് തിരിതെളിഞ്ഞു മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ശീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം മൃദംഗവിദ്വാൻ ഉമയാൾപുരം ശിവരാമന് മന്ത്രി സമ്മാനിച്ചു

യു എ പി എ കേസുകളിൽ സംസ്ഥാന ഗവൺമെന്റിന് പരിമിതികളുണ്ടെന്ന് സി

എം പൊളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻപിള്ള അഭിപ്രായപ്പെട്ടു യു എ പി എയോട് പാർട്ടിക്ക് എതിർപ്പുണ്ടെങ്കിലും ഇപ്പോഴത്തെ നിയമപ്രകാരം ഭരണഘടനാ ബാധ്യത നിറവേറ്റേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെന്റിനുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു കോഴിക്കോട്ട് ഡി വൈ എഫ് ഐ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായി രുന്നു രാമചന്ദ്രൻപി ള്ള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി മീഡിയ കമ്മ റ്റിയും ദൃശ്യവിസ്മയ കമ്മറ്റിയും ചേർന്ന് കാഞ്ഞങ്ങാട് ആർട്ട് ഫോറ ത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ദൃശ്യവിസ്മയം പരി പാടി വൈകിട്ട് അഞ്ചിന് കാഞ്ഞങ്ങാട് ആകാശ് ഓഡിറ്റോറിയത്തിൽ നടക്കും

കഴിഞ്ഞ കലോ ത്സവങ്ങളിലെ പ്രതിഭകളുടെ കലാപ്രകടങ്ങൾ ചടങ്ങിൽ ഉണ്ടായിരിക്കും സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയൻമാൻ കമൽ നടന്മാരായ സുധീർ കരമന സന്തോഷ് കീഴാറ്റൂർ എന്നിവർ മുഖ്യാതിഥികളാവും സംസ്ഥാന സ്കൂൾ കലോത്സവം പ്രമാണിച്ച് എക്സ്പ്രസ് ട്രെയി നുകൾക്ക് കാഞ്ഞങ്ങാട്ട് പ്രത്യേക സ്റ്റോപ്പ് അനുവദിച്ചു ബുധനാഴ്ച മുതൽ ഡിസംബർ രണ്ട് വരെയാണ് ട്രെയിനുകൾക്ക് താത്ക്കാലിക സ്റ്റോപ്പ് അനുവദിച്ചത് കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ യു

വിഭാഗത്തിൽ തലശ്ശേരി സൌത്ത് ഉപജില്ല ജേതാക്കളായി ഹൈസ്ക്കൂൾ വിഭാഗത്തിലും ഹയർ സെക്കന്ററി വിഭാഗത്തിലും കണ്ണൂർ നോർത്ത് ഉപജില്ലയാണ് ജേതാക്കൾ ഇടുക്കി ബൈസൺവാലി മുട്ടുകാടിന് സമീപം തോട്ടം തൊഴിലാളികൾ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപെട്ട് രണ്ട് സ്ത്രീ തൊഴിലാളികൾ മരിച്ചു അഞ്ച് പേരുടെ നില അതീവ ഗൂരുതരമാണ്

രാവിലെ എട്ടോടെ ചിന്നക്കനാൽ സൂര്യനെല്ലിയിൽ നിന്നും മുട്ടുകാടുള്ള സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിലേയ്ക്ക് തൊഴിലാളിക ളുമായി വന്ന ജീപ്പാണ് മുട്ടുകാട് വെള്ളരിപ്പിള്ളിൽ എസ്റ്റേറ്റിന് സമീപം അപകടത്തിൽ പെട്ടത് കേരള സംഗീത നാടക അക്കാദമി ഡി ടി

സി യുമായി സഹക രിച്ച് കോഴിക്കോട്ട് സംഘടിപ്പിക്കുന്ന ദേശീയ നൃത്തോത്സവത്തിന് വൈകിട്ട് തുടക്കമാവും നൃത്യതി എന്ന പേരിൽ അഞ്ചുദിവസങ്ങളി ലായി ടൌൺഹാളിൽ നടക്കുന്ന പരിപാടി മന്ത്രി ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ഗവൺമെന്റ് പരിശീലനത്തിലൂടെ വിദേശത്ത് തൊഴിലവസരം ലഭിച്ച പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് തൊഴിൽ കാർഡ് വിതരണം ചെയ്തു മന്ത്രി എ കെ ബാലൻ അങ്കമാലിയിൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു

ക്ലാസ്മുറിയിൽ പാമ്പുകടിയേറ്റ് മരിച്ച ഷഹ്ല ഷെറിന് നൽകാൻ ബത്തേരി താലൂക്കാശുപത്രിയിൽ പ്രതിവിഷം ഇല്ലായിരുന്നുവെന്ന ആരോപണം ശരിയല്ലെന്ന് ജില്ലാകലക്ടർ പറഞ്ഞു വയനാട് ജില്ലയിലെ പ്രധാന ആശുപത്രികളിലെല്ലാം പ്രതിവിഷം ആവശ്യത്തിനുണ്ടെന്നും കലക്ടർ ഡോ അദീല അബ്ദുള്ള മാധ്യമങ്ങളോട് പറഞ്ഞു ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ബെഫി പതിമൂന്നാം സംസ്ഥാന സമ്മേളനം നാളെ കണ്ണൂരിൽ സമാപിക്കും രാവിലെ നടന്ന വനിതാ സമ്മേളനം ജനാധിപത്യ മഹിള അസോസിയേഷൻ അഖിലേന്തൃ വൈസ് പ്രസിഡന്റ് സുധാ സുന്ദർരാമൻ ഉദ്ഘാടനം ചെയ്തു വൈകിട്ട് മന്ത്രി ഡോ തോമസ് ഐസക് സമ്മേളനത്തിൽ പങ്കെടുക്കും